ചരക്കുലോറി സമരം പിൻവലിച്ചു കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയവുമായി നടത്തിയെ ചർച്ചയെ തുടർന്നാണ് തീരുമാനം

തുറക്കേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി എം

വിഭാഗം സിംഗിൾസ് സെമി ഫൈനലിൽ സൌരവ് വർമ്മ ഇന്ന് മിഥുൻ മഞ്ചുനാഥുമായി ഏറ്റുമുട്ടും

നഗരവികസനം പ്രധാൻമന്ത്രി ആവാസ് യോജന അടൽ മുഷ്ൻ എന്നീ മൂന്നു ഗവൺമെന്റ് സംരംഭങ്ങളുടെ മൂന്നാം വ്യൂർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രധാൻമന്ത്രി ആവാസ് യോജിനുയിലെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിന്നിമയ്ക്ക് നടത്തും ഉത്തർപ്രദേശിലെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും തുടർന്ന് പൊതുസമ്മേളനത്തെ ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

ദക്ഷിണാഫ്രിക്ക ചൈന റഷ്യ അർജന്റീന അങ്കോള മുതലായ രാജ്യങ്ങളിലെ നേതാക്കളുമായി വിവിധ മേഖലകളിൽ നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു

നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയും ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ് മൻ കി ബാത്തിന്റെ മലയാള രൂപം ആകാശവാണിയിലും ദൂരദർശനിലും ലഭിക്കും

ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ മറാത്ത വിഭാഗത്തിന് സംവരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും ബുധനാഴ്ച നടന്ന ബന്ദ് അക്രമാസക്തമായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് മറാത്ത വിഭാഗത്തിന് സംവരണം നൽകാൻ ബാധ്യസ്ഥരാണെന്നും അതിനാലാണ് ഇത് സംബന്ധിച്ച ഓർഡിനൻസ് പുറത്തിറക്കിയതെന്നും ബി ജെ

എന്നാൽ തീരുമാനത്തെ കോടതി സ്റ്റേ ചെയ്തതായി അദ്ദേഹം പറഞ്ഞു വർഷങ്ങളായി കോൺഗ്രസും എൻ

പി യും വിഷയത്തിൽ മലക്കം മറിയുകയാണെന്നും പ്രതിപക്ഷത്തെ വിമർശിച്ച് അദ്ദേഹം പറഞ്ഞു നിലവിലെ സംസ്ഥാന ഗവൺമെന്റ് മറാത്താ വിഭാഗക്കാർക്ക് സംവരണം നൽകാൻ നടപടികൾ സ്വീകരിച്ചതായും ശ്രീ ദൻവേ അവകാശപ്പെട്ടു

ഗവൺമെന്റ് ന്യങ്ങളുടെ ഭാഗമായി അഞ്ചുവർഷത്തിൽ ഒരിക്കൽ ആനു്കൂലൃങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും ്രൂഢ്ടിയന്തിരമായി വർദ്ധിപ്പിച്ചാൽ വൻ സാമ്പത്തിക ബാധ്യത ഉണ്ട്രാക്യ്മെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചീഫ് ജസ്റ്റിസ് ദീപ്പുക് മിശ്ര അധ്യക്ഷനായ ബഞ്ചിനെ അറിയിച്ചു കേസ് വിധി പറയുന്നതിനായി അടുത്ത മാസത്തേക്ക് മാറ്റിവച്ചു

ബി

ബി ഐ ഡയറക്ടർ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസ്സുകളിലെ അന്വേഷണം ഉടൻ പൂർത്തിയാക്കാനും അന്തിമ റിപ്പോർട്ടുകൾ വൈകാതെ തന്നെ ലഭ്യമാക്കാനും എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി ആരാഞ്ഞു മണിപ്പൂരിൽ ഇത് സംബന്ധിച്ചുള്ള പൊതുതാൽപ്പര്യ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് നാല് കേസ്സുകളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി അനുവദിച്ചിരുന്ന സമയം ഇന്നലെ അവസാനിച്ചിരുന്നു

വോയിസ് കേന്ദ്ര ഗതാഗത മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കുന്നതെന്ന് കേന്ദ്ര ഹൈവേ ഗതാഗത സെക്രട്ടറി ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ശരിയായ ദിശയിൽ നിലനിർത്തുന്നതിന് ചരക്ക് നീക്കത്തിന് നിർണായകമായ പങ്കാണുള്ളതെന്നും അതിനാൽ സമരക്കാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കുമെന്ന് ഗവൺമെന്റ് ഉറപ്പുനൽകിയതായും മോട്ടോർ ട്രാൻസ്പോർട്ട് ഹൈവേ മന്ത്രാലയം സെക്രട്ടറി യുദ്ധവീർസിംഗ് മാലിക് പറഞ്ഞു സമരം പിൻവലിക്കാൻ തീരുമാനമെടുത്ത മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി ലോറി ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പഠിക്കാൻ കേന്ദ്ര ഗതാഗത സെക്രട്ടറി അധ്യക്ഷനായ സമിതിക്ക് രൂപം നൽകാൻ ചർച്ചയിൽ തീരുമാനമായി ചരക്ക് ഗതാഗതം കൂടുതൽ ലളിതമായും തടസ്സമില്ലാതെയും നടക്കുന്നതിന് പുതിയ ദേശീയ പെർമിറ്റ് നയത്തിന് ഗവൺമെന്റ് രൂപം നൽകുമെന്നും ശ്രീ യുദ്ധവീർസിംഗ് പറഞ്ഞു

മഴ തുടരുക്യും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്താൽ ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ടി വരുമെന്ന് വൈദ്യുതിമന്ത്രി എം

കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ചെറുതോണി ഡാം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെയുള്ള തോതിൽ നീരൊഴുക്ക് തുടർന്നാൽ അണക്കെട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ തുറന്ന് വിടേണ്ട സാഹചര്യമാണുള്ളത് എന്നാൽ നീരൊഴുക്ക് കുറഞ്ഞാൽ അണക്കെട്ട് തുറക്കുന്നത് പരമാവധി ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു

അതേസമയം അണക്കെട്ട് തുറന്ന് വിടേണ്ട സാഹചര്യമുണ്ടായാൽ ഡാംസേഫ്റ്റി അതോറിറ്റിയുടെയും ജില്ലാഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി മുതിർന്ന റവന്യൂ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുമായി വീഡിയോകോൺഫറൻസ് വഴി ചർച്ച നടത്തി അണക്കെട്ട് തുറക്കേണ്ടി വന്നാൽ നീരൊഴുക്കിന് തടസ്സമുണ്ടാകാൻ ഇടയുള്ള പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് അവസ്ഥവിലയിരുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി

എം കെ പ്രസിഡന്റ് എം

അദ്ദേഹത്തെ അതീവ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതായും ആരോഗ്യനില മെച്ചപ്പെട്ടു വരിക്ട്യാണെന്നും മകനും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റുമായ എം

അണുബാധയും പനിയും കുറഞ്ഞിട്ടുണ്ട് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നിരന്തര പരിചരണത്തിലാണ് കരുണാനിധിയെന്ന് സ്റ്റാലിൻ വാർത്താ ലേഖകരോട് പറഞ്ഞു കരുണാനിധിയുടെ ആരോഗൃസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും രോഗശമനം ആശംസിക്കുകയും ചെയ്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സ്റ്റാലിൻ നന്ദി പറഞ്ഞു

ദുരിത ബാധിതർക്ക് അടിയന്തിര സഹായം എത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകി

ഭൂമി സൂര്യനും ചീന്ദ്രനും ഇടയിൽ വരികയും ചന്ദ്രൻ പൂർണ്ണമായി നിഴലിൽ മൂടുകയ്യും ചെയ്യുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നത്ത് ച്ന്ദ്രൻ ചുവപ്പോ ചുവപ്പുകലർന്ന ബ്രൌൺ നിറത്തിലോ ആകുന്നതിനാൽ ഈ പ്രതിഭാസം ബ്ളഡ് മൂൺ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ചൊവ്വ ഭൂമിയുമായി ഏറ്റവും അടുത്ത് വരുമെന്ന് വിദഗ്ദ്ധർ പറഞ്ഞു

മലെഷ്യൻ താരം സതിഷ്ധരൻ രാമചന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് മിഥുൻ സെമി ക്വാളിഫൈ ചെയ്തത്

വാഷിംഗ്ടണിലേയ്ക്ക് യാത്ര ചെയ്യാൻ തയ്യാറാണെന്നും ശ്രീ

ജൊഹന്നാസ്ബെർഗിൽ ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ശേഷം ഇന്നലെ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചതാണ് ഇക്കാര്യം പുടിനും ട്രംപും തമ്മിൽ ഈയാഴ്ച ആദ്യം നടത്താനിരുന്ന രണ്ടാമത് കൂടിക്കാഴ്ച അടുത്ത വർഷത്തേയ്ക്ക് നീട്ടാൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു ഇതിൽ റഷ്യൻ ജനതയുടെ വിമർശനം നേരിടുന്ന പശ്ചാത്തലത്തിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ ശ്രീ